ൾ ൽ ൾ ഇന്ധനവില വർധന ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ന്യൂഡൽഹിയിൽ അടിയന്തര ഉന്നതയോഗം വിളിച്ചു ക്രൂഡോയിൽ ഇറക്കുമതി സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പെട്രോളിയം മന്ത്രി ധർമേന്ദ്ര പ്രധാനും ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടു ക്കും ഈ മാസം നാലിന് ഇന്ധന വില ചർച്ച ചെയ്യാൻ പ്രധാന മന്ത്രി യോഗം വിളിച്ചിരുന്നു

എന്നാൽ ഈ നടപടിക്കു ശ്ഷേവും ഇന്ധന വില തുടർച്ചയായി വർദ്ധിച്ചതിനെ തുടർന്നാണ് അടിയന്തര യോഗം ചേരുന്നത് തിത്ത്ലി ചുഴലിക്കാറ്റിൽ നാശനഷ്ടം നേരിട്ട ആന്ധ്രാപ്രദേ ശിനും ഒഡീഷക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹാ യവും വാഗ്ദാനം ചെയ്തു

കേന്ദ്രപൂളിൽ നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടു വരുന്ന് ലൈനുകൾക്ക് തകരാറുണ്ടായതിനെ തുടർന്ന് ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇന്നും നിയന്ത്രണം തുടർന്നേക്കും

ഇവർ കൊടുംങ്കാറ്റിൽ കടലിൽ ഒറ്റപ്പെട്ട നിലയിലായി രുന്നു അതിനിടെ ഗോവയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അധികൃതർ ഞായറാഴ്ച വരെ ജാഗ്രതാ നിർദേശം നൽകി കനത്ത മഴയും ചുഴലിക്കാറ്റും മൂലം ജലനിരപ്പ് ഉയരാൻ സാധ്യ തയുണ്ടെന്നും സഞ്ചാരികൾ കടലിൽ ഇറങ്ങരുതെന്നും അധി കൃതർ മുന്നറിയിപ്പ് നൽകി പി എഫ് പെൻഷൻ പദ്ധതിയിലെ അനീതിക്കെതിരായി സമർപ്പിച്ച ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും

കേസിൽ വാദം പൂർത്തിയായിട്ട് ഒന്നര വർഷം കഴിഞ്ഞു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റിനും ദേവസാം ബോർഡുകൾക്കും നോട്ടീസയച്ചു ബിജെപി നേതാവ് ഡോ സുബ്രഹ്മണ്യൻ സ്വാമിയും ടി ജി മോഹൻദാസും നൽകിയ ഹർജികളിലാണ് കോടതി നടപടി ആറാഴ്ചക്കു ശേഷം കേസ് വീണ്ടും പരിഗ ണിക്കും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ നിലപാട് സ്വാഗത്ം ചെയ്യുന്ന തായി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ന്യൂഡൽഹി യിൽ പറഞ്ഞു വിശ്വാസികളായ സ്ത്രീകൾ പ്രതിഷേധവുമായി തെരുവിൽ എത്തുമെന്ന് വിധി പ്രഖ്യാപിച്ച കോടതി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്നും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഇത്തരം തീരുമാനങ്ങളെടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് അറ്റോർണി ജനറൽ വിധിയെ വിമർശിച്ചത്

രാവിലെ ചവറയിൽ നിന്നാരംഭിച്ച യാത്ര വൈകീ ട്ടോടെ കൊല്ലം നഗരത്തിൽ എത്തും ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള നയിക്കുന്ന ജാഥയുടെ ഭാഗമായി ചിന്നക്കടയിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചി ട്ടുണ്ട് നാളെ ചാത്തന്നൂരിലാണ് ജില്ലാതല സമാപനം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്യമുണ്ടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു ശബരിമല വിഷയം രാഷ്ട്രീയവത്കരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് വിഷയം വൈകാരികമായി മാറില്ലെന്നും കേരള ത്തിന്റെ മതേതര മനസ്സിന് മാറ്റമൊന്നുമില്ലെന്നും അദ്ദേഹം മാധ്യ മങ്ങളോട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാരൃസ്ഥതമൂലം പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ തകിടം മറിഞ്ഞതായി പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

അതേസ മയം അനർഹർ വൻ തോതിൽ തുക തട്ടിയെടുത്തതായും ജില്ലാ കലക്ടർമാർ സമ്മതിച്ചതായി അദ്ദേഹം പറഞ്ഞു കുടുംബശ്രീ വഴി ഒരു ലക്ഷം രൂപ പലിശ രഹിത വായ്പ ലഭിക്കുമെന്ന പ്രാഗ്ദാനവും കാര്യക്ഷമമായിട്ടില്ല

വയനാട് ഇടുക്കി ജില്ലകളിൽ ഗവൺമെന്റിന്റെ ദുരുതാശ്വാസ പ്രവർത്തനങ്ങൾ പരിമിതമായി മാത്രമെ നടക്കുന്നുള്ളൂവെന്നും കത്തിൽ പറയുന്നു ബൊഫോഴ്സ് കേസിൽ ഹിന്ദുജ സഹോദരന്മാരെ കുറ്റവി മുക്തരാക്കിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ സൂപ്രീം കോടതി വിധി ഇന്ന്

സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം് തിരുവന ന്തപുരത്ത് തുടങ്ങി സംസ്ഥാന സമിതി നാളെ നടക്കും ഷൊർണൂർ എംഎൽഎ പി കെ ശശിക്കെതിരായ ഡിവൈഎ ഫ്ഐ വനിതാ നേതാവിന്റെ പ്രാതിയിൽ അന്വേഷണ കമ്മീ ഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നേതൃ യോഗങ്ങളുടെ പരിഗണ നയ്ക്ക് വരും

ആറിടത്ത് യു ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും വിജയിച്ചു ഇന്ധനവിലയിൽ വീണ്ടും വർധന

ഇന്ത്യാ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഹൈദരാബാദിൽ തുടങ്ങി

സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പൃൻഷിപ്പ് തിരുവനന്ത പുരത്ത് തുടങ്ങി മൂന്ന് ദിവസമാണ് ചാമ്പ്യൻഷിപ്പ്

മോട്ടോർ വാഹന വകുപ്പിലെ സേവന മേഖലകൾ ശരിയാം വിധം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു വരു ത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊയിലാണ്ടിയിൽ നിർദേ ശിച്ചു ആർ ടി ഒ ഓഫീസുകളുടെ സൌകര്യങ്ങൾ മെച്ചപ്പെടു ത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസുകൾ തുറക്കുന്ന തെന്നും അവയുടെ സൌകരൃം ഉപയോഗിച്ച് ജനങ്ങൾക്ക് മെച്ച പ്പെട്ട സേവനം ലഭൃമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കൊരട്ടിയിൽ സൌത്ത് ഇന്തൃൻ ബാങ്ക് എ ടി എമ്മിന്റെ ഭിത്തി തുരന്നാണ് മോഷണം നടത്തിയത്

പൊലീസും ഡോഗ് സ്കാഡും സ്ഥല ത്തെത്തി അന്വേഷണം ആരംഭിച്ചു എടിഎമ്മിലെയും സമീപ ദേശങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പ്പൊലീസ് പരിശോ ധിച്ചു വരികയാണ് മലബാർ സിമന്റ് സിന് ഉടൻ എം ഡി യെ നിയമിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു എല്ലാ ചട്ടങ്ങളും പാലിച്ചായിരിക്കും നിയമനമെന്നും മലബാർ സിമന്റ്സിനെ അതിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രളയക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച വായനശാല കൾക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തൃശൂരിൽ നടക്കും വൈകീട്ട് തൃശൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും

സ്വർണവിലയിൽ വൻ വർധന